സമ്മേളനം ഇന്ന് പുനരാംഭിക്കും

ശബരിമലയിൽ ഇന്ന് മണ്ഡലപൂജ

വൻ ഭക്തജനത്തിരക്ക്

തുടരുന്നു

മുസ്തീം സ്ത്രീ വിവാഹ അവകാശ സംരക്ഷണ ബിൽ ഇന്ന് ലോക്സഭയുടെ പരിഗണനയിൽ വരും

മുസ്തീം സമൂദായത്തിൽ നിലനിൽക്കുന്ന തലാഖ് നിയമവിരുദ്ധമാക്കുകയാണ് ബിൽ ലക്ഷ്യമിടുന്നത്

ഇന്ന് സഭയിൽ ഹാജരാകാൻ എല്ലാ അംഗങ്ങൾക്കും ബിജെപി വിപ്പ് നൽകിയിട്ടുണ്ട് ദേശീയ മെഡിക്കൽ കൌൺസിൽ ബില്ലും ഇന്ന് പരിഗണനയിലുണ്ട് മനുഷ്യക്കടത്ത് നിരോധന ബിൽ ടീച്ചർ എഡ്യൂക്കേഷൻ ദേശീയ കൌൺസിൽ ഭേദഗതി ബിൽ എന്നിവ രാജ്യസഭ ഇന്ന് പരിഗണിക്കുന്ന പ്രധാന ബില്ലുകളാണ്

റഫേൽ ഇടപാട് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പാക്കേജ് കാവേരി നദിജലം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷം സഭാനടപടികൾ തടസപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

തീവ്രവാദ സംഘടനയുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്നാണിത്

വിവിധയിടങ്ങളിൽ സ്ഫോടനപരമ്പരകൾ നടത്താൻ ഐഎസ് മാതൃകയിൽ പുതിയ വിഭാഗമായ ഹർകത് ഉൽ ഹർബ് ഇ ഇസ്താം സജ്ജമായിരിക്കുന്നു എന്നാണ് സൂചന

സംസ്ഥാനത്ത് ബി ജെ പി ഗവൺമെന്റ് ഒരു വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷപ്പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പ്രതിപാദിക്കുന്ന വികസനരേഖ പ്രധാനമന്ത്രി ച്ചടങ്ങിൽ പ്രകാശനം ചെയ്യുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പ്രർഞ്ഞു കാൺഗ്ര ജില്ലയിലെ ധരം ശാലയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി സംസ്ഥാന് ഗ്വൺമെന്റിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി ആശയ വിനിമയം നടത്തും

കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ രാജസ്ഥാന്റെയും സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി തവാർചന്ദ് ഗെലോട്ട് ഉത്തരാഖണ്ഡിന്റെയും ചുമതല് വഹിക്കും

ഗുജറാത്തിലെ ബി ജെ പി നേതാവ് ഗോവർദ്ധൻ ഛദാപിയ പാർട്ടി വൈസ് പ്രസിഡന്റ് ദുഷ്യന്ത് ഗൌതം നരോട്ടം മിശ്ര എന്നീ മൂന്നുപേർക്കാണ് ഉത്തർപ്രദേശിന്റെ ചുമതല മറ്റ് സംസ്ഥാനങ്ങളിലും പ്രമുഖ നേതാക്കൾക്ക് ദേശീയ അധ്യക്ഷൻ അമിത് ഷാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകിയിട്ടുണ്ട്

ഇന്തൃയും ഭൂട്ടാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളുടെ സുവർണ്ണ ജൂബിലി വർഷത്തിലാണ് ഈ സന്ദർശനം രാഷ്ട്രപതിഭവനിൽ ഭൂട്ടാൻ പ്രധാനമന്ത്രിക്ക് ഔദ്യോഗിക സ്വീകരണമൊരുക്കും

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ചർച്ച നടത്തും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം

ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വാണിജ്യമന്ത്രി സുരേഷ് പ്രഭു ഊർജ്ജ മൂന്ത്രി ആർ കെ സിങ് എന്നിവരും ഭൂട്ടാൻ പ്രധാനമന്ത്രിയെ സ്പന്ദ്ർശിക്കും

കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി ഡോ ഹർഷ് വർദ്ധൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും

വെങ്കയ്യനായിഡു ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ന്യൂഡൽഹിയിൽ അവാർഡ്ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ പരിസ്ഥിതി മലിനീകരണം നേരിടുന്നതിന് ജനങ്ങളുടെ പെരുമാറ്റത്തിൽ തന്നെ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ രാജ്യൂത്തെ എല്ലാ മേഖലയുടെയും വികസനത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും ശ്രീ നായിഡു ആഹ്വാനം ചെയ്തു

കൂടുതൽ വിവരങ്ങളുമായി കവിത

തങ്ക അങ്കി ചാർത്തിയ ശബരീശനെ തൊഴുത് പതിനായിരങ്ങളാണ് ഇന്നലെ സായൂജ്യമടഞ്ഞത്

രഥഘോഷയാത്രയായി പമ്പ വരെ എത്തിയ തങ്ക അങ്കി ഗണപതി കോവിലിൽ നിന്ന് പേടകത്തിലാക്കിയാണ് സന്നിധാനത്തു കൊണ്ടു വന്നത് സോപാനത്തിൽ തന്ത്രി കണ്ഠരര് രാജീവര് മേൽശാന്തി വി

വസുദേവൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് ശ്രീകോവിലിലേക്ക് ഏറ്റുവാങ്ങി തങ്ക അങ്കി ഘോഷയാത്രയ്ക്ക് ശരംകുത്തിയിൽ ആചാരപരമായ സ്വീകരണമാണ് നൽകിയത് ദേവസ്വംബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ ദേവസ്വംബോർഡ് ഓംബുഡ്സ്മാൻ ദേവസ്വം കമ്മീഷണർ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ തുടങ്ങിയവർ ചേർന്ന് തങ്ക അങ്കി സ്വീകരിച്ചു

സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ചടങ്ങ് കാസർകോട് മഞ്ചേശ്വരം മുതൽ ്തിർുവനന്തപുരം കളിയിക്കാവിള വരെയും കമ്പ്യാകുമാരി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും നടന്നു

കുടുംബാരോഗൃ കേന്ദ്രങ്ങളിൽ പ്രാഥമിക രോഗനിർണ്ണയത്തിന് ഇപ്പോൾ അവസരമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം റീജിയണൽ കാൻസർ സെന്ററിൽ പുതിയ ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം

ഉത്തർപ്രദേശിൽ കുറഞ്ഞ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ മുസാഫർനഗർ തണുപ്പ് കൂടിയ പ്രദേശമായി മാറി

ചെതേശ്വർ പൂജാര സെഞ്ചുറി നേടി

ഇന്ന് നോർത്ത് ഈസ്റ്റേൺ വാരിയേഴ്സ് മുംബൈ റോക്കറ്റ്സുമായി ഏറ്റുമുട്ടും ഹൈദരാബാദിൽ രാത്രി ഏഴ് മണിക്കാണ് മൽസരം

ബി

ബാങ്കുകളുടെ കരുതൽ ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമിതി പരിഗണിക്കും

ക്രിമിനൽ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനാൽ നിയമസഭ അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ നേര്ടുത്തെ സസ്പെന്റ് ചെയ്തിരുന്നു

ഇതു സംബന്ധിച്ച നടപ്പടികൾ കൈക്കാള്ളുവാൻ എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു